നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം ന് കുറിച്ച് ഇന്ന് ദുർഗ്ഗാഷ്ടമി

എ സർക്കാർ രൂപീകരിക്കുമെന്നാണ് എല്ലാ സർവേകളും റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ദലിതരെയും പാവപ്പെട്ടവരേയും ദുരിത്തിലേക്ക് തള്ളിവിട്ട ഭരണകാലത്തിൽ നിന്നാണ് എൻ ്യൂഡി

ആ ഭരണത്തൂടർച്ച സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമാണ്ന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിനൂായി സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു ബീഹാറിൽ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പകർച്ചവ്യാധി കൂടുതൽ പേരുടെ ജീവനെടുക്കുമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ദലിതരുടെ ക്ഷേമത്തിനായി ജീവിതകാലം അർപ്പിച്ച അന്തരിച്ച റാം വിലാസ് പാസ്വാനും പാവപ്പെട്ടവർക്കായി പ്രവർത്തിച്ച ബാബു രഘുവൻഷ് പ്രസാദ് സിംഗിനും താൻ ആദരാഞ്ജലി അർപ്പിക്കുന്നതായും ശ്രീ

ഗയ ഭാഗൽപൂർ എന്നിവിടങ്ങളിലെ റാലികളിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും

രണ്ട് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും ബിഎസ്പി മേധാവി മായാവതിയും ഇന്ന് ബിഹാറിൽ പ്രചരണം നടത്തും

കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കണക്ക് പ്രകാരം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുകയാണെന്ന് ആരോഗൃ മന്ത്രലയം അറിയിച്ചു

രോഗം സമയബന്ധിതമായി തിരിച്ചറിഞ്ഞ് ചികിൽസ നൽകി രോഗവ്യാപനം കുറയ്ക്കണമെന്ന് കേന്ദ്രആരോഗൃ മന്ത്രാലയം ഈ സംസ്ഥാനങ്ങൾക്ക് നിർദേശം നൽകിയിട്ടുണ്ട്

ഇനി ഏഴ് ലക്ഷത്തോളം പേർ മാറ്റമാണ് ചികിത്സയിലുള്ളത് മരണനിരക്കിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്

അതേസമയം പ്രതിദിന കോവിഡ് പരിശോധനയിലും പുരോഗതിയുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാനത്തെ കർഷകർക്കായി കിസാൻ സൂര്യോദയ പദ്ധതിയും അദ്ദേഹം ആരംഭിക്കും

പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്കു വയ്ക്കുന്നതു ദുർഗ്ഗാഷ്ടമി ദിനമായ ഇന്നാണ് നാളെയാണ് മഹാനവമി തിങ്കളാഴ്ച്ച വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും

ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഇതുവരെ ഓഫീസിലേക്ക് നിർബന്ധമായും എത്തേണ്ടിയരുന്നത് ഇനിമുതൽ എല്ലാ ജീവനക്കാരും എത്തണം

തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്

ഫുട്ബോൾ അറിയാത്തവർക്ക് പോലും ഏറെ സുപരിചിതമായ പേരാണ് പെലെ ഫുട്ബോളിന് ജനപ്രീതി നൽകിയ താരങ്ങളിൽ ഒരാളും പെലെ താനെന്ന് നിസംശയം പറയാം ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്

ഡൽഹി ക്യാപ്പിറ്റൽസാണ് പോയിന്റ പട്ടികയിൽ മുന്നിൽ

മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ടീമുകളും ഇത്ത്വണ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു എന്നതാണ് ലീഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത

പണ്ഡിറ്റുകൾക്കു എതിരായ തീവ്രവാദ അക്രമങ്ങൾക്ക് പാക്കിസ്ഥാൻ ഒത്താശ നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി

അമേരിക്കയിലെ കറുത്തവരിൽ സ്ടാബിത്തികമായി മെച്ചപ്പെട്ടവർ തൾസയിൽ താമസ്കിച്ചിരു്ന്ന ബ്ലാക്ക് വാൾസ് ട്രീറ്റ് പ്രദേശം വെള്ളക്കാരായി അക്രമികൾ പൂർണമായും തകർക്കുകയായിരുന്നു

ഹെൽപ്പ് ലൈൻ ബ്രോഡ്കാസ്റ്റ് കോൾ വാട്സ്ആപ്പ് ചാറ്റ്ബോട്ട് തുടങ്ങിയ സൌകര്യങ്ങൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷക ആവശ്യകതകളെക്കുറിച്ച് ഈ സംവിധാനം കൂടുതൽ അവബോധം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ

കാർവാർനാവിക ആസ്ഥാനത്ത് എത്തിയ അദ്ദേഹം നാവികസേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി അടിയന്തര സാഹചര്യമുണ്ടായാൽ പ്രതികരിക്കാനുള്ള സേനയുടെ ശേഷി മനസിലാക്കാനുള്ള പരിശോധനകളും അദ്ദേഹം നടത്തി

നാവികസേനയുടെ അന്തർവാഹിനികൾ അടക്കമുള്ള പടക്കപ്പലുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി

അമേരിക്കൻ നടപടിക്ക് എതിരെ ചൈന ശക്തമായി രംഗത്തു വന്നു